വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം കേരള തമിഴ്നാട് കർണാടക അതിർത്തികളിൽ പരിശോധന കർശനമാക്കി

അവസാനിപ്പിച്ചു

ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി

നദ്ദ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന കോൺഗ്രസ് നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമാട്ട്യാപ്റ്റൻ അമ്രീന്ദർ സിംഗ് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ രാജ്യസഭ എം

ഒരുരാജ്യം ഒരു നികുതി ഒരു റേഷൻ കാർഡ് സംവിധാനം അടുത്തുതന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞു

ഗവൺമെന്റുകൾ ശ്രമിക്കുന്നില്ലെന്നും അധികാരത്തിൽ തുടരുന്നതിനായി പൌരന്മാർക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിൽ മാത്രമാണ് ഇവർ ശ്രദ്ധിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ബി ജെ

ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

താത്പര്യമുള്ളവർ ആധാർ നമ്പർ നൽകിയാൽ മത്തി ്ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ഉത്കണ്ഠയുള്ള് സ്ംസ്ഥാനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് ചർച്ച നടത്തിപ്പിപ്പരികയാണെന്ന് ലോക്സഭയിൽ എഴുതി നൽകിയ മറുപട്ട്യിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു കുടുംബങ്ങളുമായും വ്യക്തികളുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ തേടുന്നത് ജനസംഖ്യാ രജിസ്റ്ററിലേക്ക് വിവരങ്ങൾ തേടി വീടുകളിൽ എത്തുന്ന ജീവനക്കാർക്കായി കൈപുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്

ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആരുടെയെങ്കിലും പൌരത്വത്തിൽ സംശയമുണ്ടായാലും കൂടുതൽ പരിശോധനകളൊന്നും ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

സഞ്ചാരനിയന്ത്രണം മുൻകൃതൃൽ വൈറസിനെ സംബന്ധിച്ച ഗവേഷണം എന്നിവയെക്കുറിച്ച് കൂടിയാലോചിക്കാൻ ജർമ്മനി ബ്രിട്ടൺ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ ഇന്ന് യോഗം ചേരും

അതേ സമയം വൈറസിനെകുറിച്ച് പഠിക്കാനും നിയന്ത്രണം ഉറപ്പാക്കാനുമായി ചൈനയിലെത്തുന്ന ലോകാരോഗൃസംഘടന സംഘത്തിൽ തങ്ങളുടെ വിദഗ്ദ്ധരെ കൂടി അയയ്ക്കാമെന്ന അമേരിക്കയുടെ വാഗ്ദാനം ചൈന സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചൈന തായ്ലൻഡ് സിംഗപ്പൂർ ഹോംഗ്കോംഗ് എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരെ ഡൽഹി കൊൽക്കത്ത മുംബൈ കൊച്ചി ബംഗളൂരു വിമാനത്താവളങ്ങളിൽ പരിശോധിക്കും രാജ്യത്ത് വൈറസ് പട്ടരു്ന്നത് തടയാൻ സ്വീകരിച്ച നടപടികളെകുറിച്ച് കഴിഞ്ഞ് ദിവസം ആരോഗൃ വിദേശകാര്യ സിവിൽവ്യോമയാന് ഷിപ്പിംഗ് മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു

ഹോങ്കോങിൽ കൊറോണ വൈറസ് ബാധിച്ച് ഒരാൾ മരിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്നാണിത്

കന്യാകുമാരി കോയമ്പത്തൂർ തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് പരിശോധന വിദഗ്ധ മെഡിക്കൽ സംഘത്തെ ഇവിടെ നിയോഗിക്കുമെന്ന് തമിഴ്നാട് ആരോഗ്യ വകുപ്പ് അറിയിച്ചു തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഇവിടേക്ക് എത്തുന്നവർക്കും ആവശ്യമായ മാർഗ നിർദേശങ്ങൾ നൽകുമെന്നും അധികൃതർ വൃക്തമാക്കി കേരള കർണാടക അതിർത്തിയിലും സമാനമായ പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ കന്നഡ കൊടക് ചാമരാജ് നഗർ മൈസൂരു എന്നീ ജില്ലകളിലെ കേരളാ അതിർത്തി ചെക്പോസ്റ്റുകളിലാണ് ഇന്ന് മുതൽ പരിശോധന നടത്തുന്നത്

മികച്ച തുടക്കം ലഭിച്ച പാക്കിസ്ഥാന് മധ്യനിരയുടെ മോശം ബാറ്റിംഗാണ് വിനയായത് മൂന്ന് വിക്കറ്റ് നേടിയ സുശാന്ത് മിശ്ര രണ്ട് വീതം വിക്കറ്റുകൾ നേടിയ കാർത്തിക് തൃാഗി രവി ബിഷ്ണോയ് എന്നിവരാണ് ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ തിളങ്ങിയത്

ഇതോടെ ലോക റാങ്കിംഗിൽ ചനു നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു

ജാതി മതഭേദമില്ലാതെ രാജ്യത്തിന്റെ വികസനത്തിനാണ് എൻ്ട്ഡി്എ ഗവൺമെന്റ് പരിശ്രമിക്കുന്നതെന്ന് ബി ജെ

യിലെ ഭൂപേന്ദ്ര ്യാദവ് പറഞ്ഞു ഷാഹിൻബാഗിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുന്നവർക്ക് പിന്തുണ നൽകി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

നയപ്രഖ്യാപന പ്രസംഗത്തിൽ അപാകം ഉണ്ടെന്നും പ്രമേയത്തിൽ ഭേദഗതികൾ ആവശ്യമാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു

ജെ

അംഗം ആനന്ദ് ഹെഗ്ഡേ മഹാത്മാഗാന്ധിയുമാ്യി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വച്ചത് തുടർന്ന് ലോക്സഭ വീും സമ്മേളിച്ചപ്പോൾ കോൺഗ്രസ് ഡി എം

തന്റെ പ്രസ്താവന സംബന്ധിച്ച് ബി ജെ

വ്യക്തത വരുത്തിയിട്ടുന്നെ് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി പറഞ്ഞു

ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം അറിയിച്ചത്

ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുവേണ്ടി കുറ്റവാളികളെ എത്രയും വേഗം തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെട്ട് ആം

പ്രതിരോധ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഒറ്റ മേൽക്കൂരയ്ക്കു കീഴിൽകൊണ്ടു വരി കയും പൊതുസ്വകാര്യ ഉൽപ്പാദകർക്കും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ക്കും അവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് മേളയുടെ ലക്ഷ്യം